ന്തപുരത്ത് സർവ്വകക്ഷിയോഗം ശബരിമല പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി പരിഗണി ക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് പിടിവാശി ഉപേക്ഷിക്കണമെന്ന് ബി ജെ പിയും കോൺഗ്രസും മുസ്ലിം ലീഗും ഇന്ന് ശിശുദിനം കൂട്ടികൾക്ക് സ്നേഹവും വാത്സല്യവും നിഷേധിക്ക

ഇന്ന് തുടക്കമാകും ഒളിമ്പിക്സിൽ മലയാളി സാന്നിധ്യം ഉറപ്പിക്കാൻ ഗവൺമെന്റ് സാഹ ചര്യമൊരുക്കി വരികയാണെന്ന് മന്ത്രി ഇ

ശബരിമല യുവതി പ്രവേശന വിഷയം ചർച്ച ചെയ്യാൻ നാളെ തിരുവന ന്തപുരത്ത് സർവകക്ഷി യോഗം ചേരും

നിയമസഭയിൽ പ്രാതിനിധ്യം ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ രാഷ്ട്രീയ കക്ഷികളേയും യോഗത്തിന് ക്ഷണിച്ചിട്ടുണ്ട് സാമുദായിക സംഘടനകളെ യോഗത്തിലേക്ക് ക്ഷണിക്കണമെന്ന കാരൃത്തിൽ അന്തിമ തീരുമാനം ഇന്നെടുത്തേക്കും ശനിയാഴ്ച മണ്ഡല മകരവിളക്ക് മഹോത്സവം തുടങ്ങാനിരിക്കെ നാളത്തെ സർവകക്ഷി യോഗം ഏറെ നിർണായകമാണ്

ഇന്നലത്തെ കോടതി തീരുമാനത്തെകുറിച്ച് നിയമോപദേശം തേടാനും ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്

ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു

എൻ ഡി എ ശബരിമല സംരക്ഷണ രഥയാത്രയുടെ സമാപനയോഗത്തിൽ പത്തനംതിട്ട യിൽ സംസാരിക്കുകയായിരുന്നു ശ്രീധരൻപിള്ള ഭരണഘടനാ ബഞ്ചിന്റെ വിധി പുനഃപരിശോധിക്കാമെന്ന സുപ്രീം കോടതി തീരുമാനം അത്യപൂർവ്വ മാണെന്ന് അദ്ദേഹം പറഞ്ഞു വിശ്വാസികളുടെ വികാരം മാനിക്കാൻ സുപ്രീം കോടതി തയ്യാറായപ്പോൾ അതുവരെ കാത്തിരിക്കാൻ ഗവൺ മെന്റ് വിവേകം കാണിക്കണമെന്നും ശ്രീധരൻപിളള ആവശ്യപ്പെട്ടു സ്വാമി അയ്യ പ്പന്റെ കോടതിയിൽ സമരത്തിന് സ്റ്റേ ഇല്ലെന്നും സമരം തുടരുമെന്നും ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി എച്ച് രാജ ചടങ്ങിൽ പറഞ്ഞു സമാ പന സമ്മേളനം ആന്ധ്രയിലെ ആത്മീയാചാര്യൻ സ്വാമി പരിപൂർണ്ണാനന്ദ ഉദ്ഘാടനം ചെയ്തു ് ശബരിമല ഹർജികളിൽ സുപ്രീംകോടതിയുടെ തീരുമാനം സ്വാഗതാർഹമാണെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായ പ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവതികളെ സന്നിധാനത്ത് പ്രവേശിപ്പി ക്കുമെന്ന പിടിവാശി ഗവൺമെന്റ് മണ്ഡല മകര വിളക്ക് കാലത്ത് ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു വിധി സ്റ്റേ ചെയ്തില്ല എന്ന സാങ്കേതികത്വത്തിൽ കടിച്ചുതൂങ്ങാൻ ഗവൺമെന്റ് ശ്രമിക്കരുത് ശബരിമല പ്രശ്നത്തിൽ റിവ്യൂ ഹർജി നൽകിയ രാഷ്ട്രീയ കക്ഷി കോൺഗ്രസ് മാത്രമാണെന്നും അതിന് തയ്യാറാവാത്ത ബി

പിയുടേത് കള്ളക്കളിയാണെന്നും ചെന്നിത്തല പറഞ്ഞു

എ മജീദ് ആവശ്യപ്പെട്ടു സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നു എന്ന പേരിൽ വിശ്വാസികൾക്കെതിരായ നീക്കം ഗവൺമെന്റ് നടത്തിയതാണ് ശബരിമലയെ സംഘർഷമേഖലയാക്കാൻ വഴിയൊരുക്കിയതെന്ന് മജീദ് കോഴിക്കോട്ട് കുറ്റപ്പെടുത്തി സർവ്വകക്ഷി യോഗ തീരുമാനത്തെ ലീഗ് സ്വാഗതം ചെയ്തു ് ് ് ് ് ് ശബരിമല റിവ്യൂ ഹർജികളും റിട്ട് ഹർജികളും സുപ്രീം കോടതി പരിഗണിച്ച സാഹചര്യത്തിൽ പ്രതിഷേധ സമരങ്ങൾ നിർത്തിവെക്കണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ഉവള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു മണ്ഡല തീർത്ഥാടനകാലം സമരകാലുമാക്കാതിരിക്കാൻ എല്ലാവരും തയ്യാറാവണം

സ്നേഹവും വാത്സലൃവും നിഷേധിക്കപ്പെട്ട് കുട്ടികൾ യാതനാ പൂർവ്വം കഴിയേണ്ടിവരുന്ന അവസ്ഥ സംസ്കാരത്തിന്റേതല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു പഠിക്കേണ്ട കാലത്ത് ഹോട്ടലിലും മറ്റിടങ്ങളിലും കഠിനമായി പണിയെടുക്കേണ്ടിവരുന്ന കാഴ്ച രാജ്യത്ത് പല യിടത്തുമുണ്ട് അക്ഷരങ്ങളുടെ കിലുക്കം കുഞ്ഞുങ്ങൾക്ക് നഷ്ടമാകാതിരി ക്കാൻ സമൂഹം ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു സംസ്ഥാന ശിശുക്ഷേമസമിതി ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരു വനന്തപുരത്ത് സംഘടിപ്പിച്ച ദേശീയോദ്ഗ്രഥന സർഗ്ഗ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ടൌൺഹാളിൽ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും

ചന്ദ്രശേഖരൻ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുക്കും കേരള ബാങ്കും പ്രാഥമിക സഹകരണ സംഘ ങ്ങളുടെ അവസരവും എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട്

നരേന്ദ്രമോദി സിംഗപ്പൂരിലെത്തി സിംഗപ്പൂർ ഫിൻടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും സിംഗപ്പുരിലെത്തുന്ന യു എസ് വൈസ് പ്രസിഡന്റ് മൈക് പെൻസുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയും നടത്തും

ഐഎസ്ആർഒയുടെ ഈ വർഷത്തെ അഞ്ചാമത്തെ വിക്ഷേപണമാണിത്

ഇന്ന് വാദം കേൾക്കും വിമാനങ്ങളുടെ വിലയും മറ്റു തന്ത്രപ്രധാന വിവരങ്ങളും മുദ്രവച്ച കവറിൽ കേന്ദ്ര ഗവൺമെൻറ് സുപ്രീംകോടതിക്ക് കൈമാറിയിരുന്നു

അടുത്ത ഒളിമ്പിക്സിൽ രാജ്യത്തിനുവേണ്ടി മെഡൽ നേടുന്നവ രിൽ മലയാളി സാന്നിധ്യം ഉറപ്പിക്കാൻ ഗവൺമെന്റ് സാഹചര്യം ഒരുക്കി വരികയാണെന്ന് മന്ത്രി ഇ

കായിക ഇനങ്ങളിൽ അന്തർദേശീയ നിലവാരത്തോടെ പരിശീലനം ഉറപ്പാക്കും കിക്കോഫ് പദ്ധതി വഴി ഫുട്ബോളിന് പ്രത്യേക പരിശീലനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു കൊല്ലത്ത് ജനുവരിയിൽ ആരംഭിക്കുന്ന ജൂനിയർ വിമൻ ദേശീയ ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ സ്വാഗതസംഘ രൂപീകരണം ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു മന്ത്രി

ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജും വനിതാവിഭാഗത്തിൽ പാലക്കാട് മെഴ്സി കോളേജും മുന്നേറ്റം തുടരുന്നു

സർവകലാശാലാ മീറ്റിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ സ്റ്റീപ്പ്ൾ ചെയ്സ് മത്സരം ഇന്ന് രാവിലെ നടക്കും മീറ്റ് ഇന്ന് വൈകിട്ട് സമാപിക്കും

ടിഷ്യു കൾച്ചർ വാഴത്തൈകൾ ഉല്പാദിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വി

സുനിൽകുമാർ അറിയിച്ചു കഴക്കൂട്ടം ബയോടെക്നോളജി സെന്റ റിൽ നൂതനപരിശീലനകേന്ദ്രത്തിന് തറക്കല്പ്പിടുകയായിരുന്നു മന്ത്രി ടിഷ്യൂ കൾച്ചർ ലാബിന്റെ നവീകരണവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു തെങ്ങിൻതൈകൾ ടിഷ്യു കൾച്ചർ വഴി ഉല്പാദിപ്പിക്കാനും ശ്രമം ആരംഭിച്ച തായി മന്ത്രി അറിയിച്ചു

ഇതോടൊപ്പം നാല് ജില്ലകളിൽ നടപ്പാക്കിയ ശരണ ബാലൃം പദ്ധതി സംസ്ഥാന വൃാപകമാക്കുന്ന പ്രഖ്യാപനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുമെന്ന് മന്ത്രി കെ

ശൈലജ തിരുവനന്തപു രത്ത് അറിയിച്ചു

ശ്രീരാമകൃഷ്ണൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു നിയമസഭയുടെ പ്രവർത്തനങ്ങൾ സത്യസന്ധമായും സമയബന്ധിതമായും ജനങ്ങളിൽഎത്തിക്കുന്നത് പാർല മെന്ററി ജനാധിപത്യസംവിധാനത്തിൽ പരമപ്രധാനമാണെന്ന് സ്പീക്കർ പറ ഞ്ഞു നിയമസഭയ്ക്ക് സ്വന്തമായി ടെലിവിഷൻ ചാനൽ ആരംഭിക്കുന്ന കാര്യവും ആലോചനയിലുണ്ടെന്ന് സ്പീക്കർ വെളിപ്പെടുത്തി

ക്ഷീരകർഷകർക്കുണ്ടാകുന്ന അവിചാരിത നഷ്ടം നികത്താൻ മൃഗസംരക്ഷണവകുപ്പ് നടപ്പാക്കുന്ന ഗോസമൃദ്ധി പ്ലസ് ഇൻഷുറൻസ് പരി രക്ഷാ പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറ്റിങ്ങൽ മുൻസി പ്പൽ ടൌൺഹാളിൽ മന്ത്രി കെ രാജു പദ്ധതി ഉദ്ഘാടനം ചെയ്യും

് ഇന്ത്യയുടെ മതനിരപേക്ഷത പരിരക്ഷിക്കാൻ എഴുത്തുകാരും ചിന്തകരും ശ്രമം നടത്തണമെന്ന് മന്ത്രി ഡോക്ടർ കെ

സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരത്ത് മന്ത്രി കെ

ശൈലജ ഉദ്ഘാടനം ചെയ്യും

തമിഴ്നാട് തീരത്ത് രൂപപ്പെട്ടിരിക്കുന്ന ന്യൂനമർദ്ദം കേരള തീരത്തേക്ക് അടുക്കുന്നതിനാൽ നാളെയും മറ്റന്നാളും പാലക്കാട് ജില്ലയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

മലപ്പുറം ജില്ലയിൽ ദേശീയപാതാവികസനത്തിന് ഭൂമി വിട്ടുനൽകു ന്നവർക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്ന് ജില്ലാ കലക്ടർ അമിത് മീണ അറിയിച്ചു

പാലക്കാട് കല്പാത്തി രഥോത്സവത്തിന്റെ ഭാഗമായ രഥപ്രയാണങ്ങൾക്കു ഇന്ന് തുടക്കമാകും നാളെ രണ്ടാം തേരുത്സവം കഴിഞ്ഞ് മറ്റന്നാളാണ് പ്രസിദ്ധമായ ദേവരഥ സംഗമം

രാജീവ് ഉദ്ഘാടനം ചെയ്തു